ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അടുത്ത അഞ്ചൂ വർഷം ആരു ഭരിക്കുമെന്ന ജനവിധി ഇന്നറിയാം എട്ടു മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും

ശ്രീനഗറിൽ കഴിഞ്ഞവർഷം പൊലീസ് സംഘത്തെ ആക്രമിച്ചു ഐ എസ് തീവ്രവാദികളെന്ന് സംശയിക്കുന്ന നാലുപേർക്കെതിരെ എൻ

സൂപ്രീംകോടതി ജഡ്ജിമാരായി കൊളീജിയം നിർദ്ദേശിച്ചു നാലൂപേരുകൾ കൂടി കേന്ദ്രം അംഗീകരിച്ചു

ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി സിറിൽ റാമഫോസ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു

ഒന്നരമാസം നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് കൂടുതൽ വിവരങ്ങളുമായി സീനാആൻ്റണി

ആന്ധ്രാപ്രദേശ് സിക്കിം ഒഡീഷ അരുണാചൽപ്പ്ദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പു ഫലവും ് ഇതോടൊപ്പം പുറത്തുവരും

വി പാറ്റ് രസീതുകൾ കൂടി എണ്ണുന്നതിനാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം വൈകാൻ സാധ്യതയുണ്ട് ഇതാദ്യമയാണ് വോട്ട് ചെയ്തതിന്റെ രേഖയായ വി വി പാറ്റ് രസീതുകളും വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളും തമ്മിൽ ഒത്തുനോക്കുന്നത്

വി എം കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്

ന്യൂസ് ഡസ്ക് ആകാശവാണി

പ്രസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ റിട്ടേണ്ടിട്ടഗ് ഓഫീസർമാർ ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ എന്നിവർ പ്രഖ്യാപിക്കുന്ന ഫലങ്ങളും ഇതിലൂടെ അറിയാൻ സാധിക്കും

സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും പൊലീസ് മേധാവികൾക്കുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്ട്രോങ്ങ് റൂമുകളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു

വി പാറ്റ് പേപ്പർ സ്ലിപ്പുകൾ പൃത് എണ്ണമെന്ന പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം ത്ത്രെഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി

പാറ്റ് സ്ലിപ്പുകൾ ആദ്യം എണ്ണിയാൽ തെരഞ്ഞെടുപ്പ് ഫലം അനന്തമായി നീണ്ടുപോകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

സംസ്ഥാനത്ത് വോട്ടെണ്ണലിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്

ആവശ്യമെങ്കിൽ കൂടുതൽ സജ്ജീകരിക്കും

നാല് ടേബിളുകളിൽ വീതമായിരിക്കും തപാൽ വോട്ടുകൾ എണ്ണുക

വിജയി ആരെന്ന് വൃക്തമാകുമെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീടേ ഉണ്ടാകൂ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടെ വി വി

വോട്ടിംഗ് യന്ത്രത്തിലെ ഫലവുമായി വ്യത്യാസമുണ്ടെങ്കിൽ വി വി

സംസ്ഥാനത്താകെ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്

കാസർഗോഡ് ജില്ലയിൽ രണ്ടിടത്ത് കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്

ചവറ പുനലൂർ ചടയമംഗലം കൊല്ലം ന്ടിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ സെന്റ് അലോഷ്യസിലും കൂണ്ട്ടറും ഇരവിപുരം ചാത്തന്നൂർ മണ്ഡലങ്ങളിലേത് തേവള്ളി ബോയ്സ് ക്ഷെസ്കൂളിലുമാണ് എണ്ണുക

കോട്ടയം നഗരത്തിലെ എംഡി സെമിനാരി സുകൾ മൌണ്ട് കാർമ്മൽ സ്കൂൾ ബസേലിയസ് കോളജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്

വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന പാനൽ ചർച്ചകളും ക്രിമ്പീക്ർിച്ചിട്ടുണ്ട് നാളെയും പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ കേൾക്ക്ാം

ഐ

എ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചത്

എ

എ നിയമമനുസരിച്ചും ഐ

സി യിലെ ക്രിമിനൽ രാജ്യദ്രോഹകുറ്റം അനുസരിച്ചുമാണ് എൻ ഐ എ ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്

ജസ്റ്റിസ് അനിരുദ്ധ ബോസ് ജസ്റ്റിസ് എ

നിയമന ഉത്തരവിൽ രാഷ്ട്രപതി രാംണാഥ് കോവിന്ദ് ഒപ്പുവെച്ചു

അതിനുശേഷം ഡെപ്യൂട്ടി പ്രസിഡനറിനേയും ക്യാബിനറ്റിനെയും ഇദ്ദേഹം നിർദ്ദേശിക്കും

ഇതു സംബന്ധിച്ച വിജ്ഞാപനം നിയമ മന്ത്രാലയം ഇന്നലെ പുറത്തുവിട്ടു

നിലവിൽ ജാർഖണ്ഡ് ഹൈക്കോടതി ജഡ്ജാണ് ഇദ്ദേഹം